കിർഗിസ്ഥാനിലെ ബിഷ്കെകിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്തീനറി സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ സീരീസ് ഫൈനൽസ് ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും

മേഖലയിലെ സഹകരണം വികസനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് ശ്രീ നരേന്ദ്രമോദി പങ്കുവയ്ക്കും

വിശദാംശങ്ങളുമായി ശ്രീ സുരേഷ്

സെപ്റ്റംബറിൽ റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ നടക്കുന്ന കിഴക്കൻ സാമ്പത്തിക ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും

എസ് ഐ പദ്ധതിയിൽ തൊഴിലാളിയും തൊഴിലുടമയും അടയ്ക്കേണ്ട വിഹിതത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കുറവുവരുത്തി

ചരിത്രപരമായ തീരുമാനമാണിതെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വാർത്താക്കുളിപ്പിൽ അറിയിച്ചു

രാജ്യരക്ഷാമന്ത്രി ആഭ്യന്തരമന്ത്രി ധനകാര്യമന്ത്രി കൃഷിമന്ത്രി ഗ്രാമവികസന മന്ത്രി തുടങ്ങിയവരും മറ്റ് അംഗങ്ങളും യോഗത്തിൽ സംബന്ധിക്കും മഴവെള്ള സംഭരണം വരൾച്ചയും പരിഹാര മാർഗ്ഗങ്ങളും കാർഷിക പരിവർത്തനം തീവ്രവാദം നിലനിൽക്കുന്ന ജില്ലകളിലെ സുരക്ഷാ കാരൃങ്ങൾ തുടങ്ങിയവയാകും യോഗത്തിൽ ചർച്ച ചെയ്യുക

കേന്ദ്ര ബജറ്റിനു മുന്നോടിയായാണ് ധനകാര്യ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ വിദഗ്ദ്ധരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത് അടിസ്ഥാന സൌകര്യ മേഖലകളായ ദേശീയപാത റെയിൽവേ ടെലികോം വാഹന വ്യവസായം തുടങ്ങിയ് രംഗങ്ങളിൽ കൂടുതൽ മൂലധന നിക്ഷേപം ലക്ഷ്യമിട്ടാണ് ചർച്ച് നടത്തിയത് അടിസ്ഥാന സൌകരൃ മേഖലകളിൽ ചെലവ്ട് വർധിച്ചതിനാൽ നികുതി ഇളവുകളും മറ്റും നൽകുന്നത് നിക്ഷേപ്പം വർധിക്കാൻ സഹായിക്കുമെന്ന് ചർച്ചയിൽ സംബന്ധിച്ചുവ്യാപ്പാര പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ പ്രമുഖരുമായി ശ്രീമതി നിർമല സീതാരാമൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും

മെയ്ക്ക് ഇൻ ഇന്തൃ പദ്ധതിയിലൂടെ ഇവ നിർമിക്കാനാവുമോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഇന്നലെ ചേർന്ന നിയമസഭയിൽ പ്രോടെം സ്പീക്കറായ സമ്പാങ്ങി വെങ്കട്ട ച്ചിന്ന അപ്പള നായിഡുവാണ് ശ്രീ

സ്പീക്കറായി തിരഞ്ഞെട്ടുത്തതിന് സഭാംഗങ്ങളോട് നന്ദി അറിയിച്ച ശ്രീ

ബീഹാറിലെ മുസാഫർപൂർ ഗയ എന്നിവിടങ്ങളിൽ മസ്തിഷ്ക ജരവും ജപ്പാൻ ജവരവും പടരുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച കേന്ദ്രസഹമന്ത്രി അശ്വനി കുമാർ ചൌബെയും സന്നിഹിതനായിരുന്നു സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തുന്നുന്നതായും പൂർണ്ണ സഹായ സഹകരണം നൽകുന്നതായും ഹർഷവർദ്ധൻ അറിയിച്ചു

രക്തദാനവും ആഗോളതലത്തിൽ എല്ലാവർക്കും സുരക്ഷിതമായ രക്തദാന സൌകര്യവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ലോക രക്തദാന ദിനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ആഗോള പരിപാടിയുടെ ആതിഥേയത്വം വഹിക്കുന്നത് റുവാൻഡയാണ്

രക്തഗ്രൂപ്പുകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ നിസ്തുല സംഭാവന നൽകിയ ആസ്ട്രിയയിലെ സസൃ ശാസ്ത്രജ്ഞനും നോബൽ സമ്മാന്യു ജേതാവുമായ കാൾ ലാൻഡ്സ്റ്റെയിനറുടെ ഓർമ്മയ്ക്കായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഇന്ന് രക്തദാനത്തിന്റെ മഹത്പം ക്ത്രിയിക്കാൻ തിരഞ്ഞെടുത്തത്

രാത്രിയോടെ ചുഴലിക്കാറ്റിന്റെ ദിശ മാറി ഒമാൻ തീരത്തേയ്ക്ക് നീങ്ങി സൌരാഷ്ട്രയുടെ തീരപ്രദേശങ്ങളിൽ ശക്തിയായ ചുഴലിക്കാറ്റിനൊപ്പം കനത്ത മഴയും ഉണ്ടായി പോർബന്തർ വെരാവൽ സൌരാഷ്ട്ര മേഖലകളിലാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത് കനത്ത ദൂരന്തം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സൌരാഷ്ട്ര മേഖലയിൽ നിന്ന് മൂന്നു ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചിരുന്നു അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വായു ചുഴലിക്കാറ്റ് ഗുജറാത്തിൽ കടക്കില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ അറിയിച്ചിരുന്നു

മീൻപിടുത്തക്കാർ കടലിൽ പ്പോകരുത് കർണ്ണാടക ലക്ഷദ്വീപ് തമിഴ്നാട് തീരത്ത് കനത്ത് തിരമാലകൾ ഉണ്ടാവുമെന്നും മുന്നറിയിപ്പുണ്ട്

തിരുവനന്തപുരം മുംബൈ പൂനെ നുങ്കംബാക്കം നിരീക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരത്തെ തന്നെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അംഗീകാരം ലഭിക്കാൻ സഹായിച്ച എല്ലാവരെയും ഗോവയിലെ ഐ

ഡി ഡയറക്ടർ ഇൻചാർജ് കെ

ആദ്യഘട്ടത്തിൽ പുനരുപയോഗമല്ലാത്തതും ഇറക്കുമതി ചെയ്യുന്നതുമായ അജൈവ പ്ലാസ്റ്റിക് ബാഗുകളും നിരോധിക്കും പിന്നീട് ഘട്ടംഘട്ടമായി പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തും

സീരീസ് ഫൈനൽസിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്തൃ ഇന്ന് ജപ്പാനെ നേരിടും പൂൾ എ യിൽ കളിച്ച മൂന്നു മത്സരങ്ങളിലും ജയിച്ച് ഗ്രൂപ്പിൽ മുന്നിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ സ്ഥാനമുറപ്പിക്കാൻ ഇന്ത്യയ്ക്ക് വിജയം അനിവാര്യമാണ്

സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ന്യൂസിലാന്റ് മത്സരം കനത്ത മഴയെ തുടർന്ന് ഒഴിവാക്കി

പോയിന്റ് നിലയിൽ ന്യൂസിലാന്റാണ് ഇപ്പോൾ മുന്നിൽ

എസ് ആർ ഒ